ത ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ എണ്ണത്തിൽ കോഴിക്കോട് ജില്ല ലക്ഷ്യത്തിൽ കവിഞ്ഞ നേട്ടം കൈവരിച്ചു

വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ അനിവാര്യ ഘട്ടം വന്നാൽ മാത്രമേ സമ്പൂർണ്ണ ലോക്ഡൌണിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആവശ്യമില്ലെന്നാണ് സർവ്വക്ഷിയോഗത്തിൽ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ ശക്തമാക്കണമെന്നായിരുന്നു യോഗത്തിന്റെ നിർദ്ദേശം ഗവൺമെന്റ് അത് സ്വീകരിച്ച് നടപ്പാക്കുമെന്ന് പിണറായി വിജയൻ അറിയിച്ചു രോഗവ്യാപനത്തിന്റെ തോത് പരിഗണിക്കുമ്പോൾ നേരിയ ആശ്വാസമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ഇപ്പോഴത്തെ സമ്പ്രദായം വിജയകരമാണ് എന്നതിന്റെ സൂചനയാണ് അതെന്നും അദ്ദേഹം വിലയിരുത്തി

ഏതായാലും ഉടനെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി രുര അതേസമയം സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സൂപ്പർ സ്പ്രെഡ് ഒഴിവാക്കാൻ കർമ്മ പരിപാടി നടപ്പാക്കും രോഗവ്യാപനം കൂടിയ മേഖലകളെ പ്രത്യേക ക്ലസ്റ്ററായി തിരിച്ച് കർശന നടപടികൾ സ്വീകരിച്ച് വരികയാണ് പരിശോധനകൾ വ്യാപിപ്പിച്ച് രോഗബാധിതരെ കണ്ടെത്തുകയും സമ്പർക്കത്തിലേർപ്പെട്ടവരെ ക്വാറന്റൈൻ ചെയ്യുകയുമാണ് പ്രധാന നടപടി കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശത്തെ എല്ലാ ആളുകളെയും ക്വാറന്റൈൻ ചെയ്യുന്നുണ്ട് സമ്പർക്കം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പൊലീസ് ഉദ്യോഗസ്ഥരെക്കൂടി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദരര കോവിഡ് പരിശോധനയുടെ കാര്യത്തിൽ ദേശീയതലത്തിൽ കേരളം മൂന്നാം സ്ഥാനത്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

വിശദാംശങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ടെസ്റ്റ് പോസിറ്റീവിറ്റിയെങ്കിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി രുഭ പ്രവാസികൾക്ക് വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന ആന്റിബോഡി ടെസ്റ്റിലെ കൃത്യതയില്ലായ്മകൊണ്ടാണ് പരിശോധന നിർത്തിവെച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ടെസ്റ്റിൽ നെഗറ്റീവായാൽ രോഗമില്ലെന്ന ധാരണയിൽ അവർ പുറത്തിറങ്ങി നടക്കും ക്വാറന്റൈനിൽ ഇളവ് വരുത്തുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ രോഗലക്ഷ കാണിക്കുന്നവരെ മാത്രം ആന്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു

രോഗവ്യാപന നില വിലയിരുത്തി ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ജനങ്ങളുടെ അസൌകര്യങ്ങൾ കുറയ്ക്കാൻ പോംവഴികൾ ഗവൺമെന്റ് ആലോചിച്ച് വരികയാണ് സംസ്ഥാനത്ത് ഞായറാഴ്ച ലോക്ഡൌൺ നിലവിലില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രുമ കോവിഡ് ബാധിച്ച് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്ന ആലുവ എടത്തല എവർഗ്രീൻ നഗർ കാഞ്ഞിരത്തിങ്കൽ ബൈഹക്കി മരിച്ചു

കോവിഡ് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം പ്ലാസ്മ തെറാപ്പിയടക്കം ചികിത്സകൾ രോഗിക്ക് നൽകിയിരുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു

ജില്ലയിൽ സമ്പർക്കം മൂലം ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ചങ്ങനാശേരി ക്ലസ്റ്ററിന്റെ ഭാഗമായിരുന്നു പായിപ്പാട് ഇതുവരെ

രുമ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയ ഇരിങ്ങാലക്കുട നഗരസഭയിലും മുരിയാട് പഞ്ചായത്തിലും ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വൈദ്യസഹായം മരണാവശ്യം എന്നിവ ഒഴികെ അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കും

അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒരു വാർഡിൽ രണ്ട് വീതം തുറക്കാവുന്നതാണ് ഇക്കാര്യം തദ്ദേശ സ്ഥാപനതലത്തിൽ തീരുമാനിക്കും ദേദ ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ എണ്ണത്തിൽ കോഴിക്കോട് ജില്ല ലക്ഷ്യത്തിൽ കവിഞ്ഞ നേട്ടം കൈവരിച്ചു

രോഗികളെ പാർപ്പിക്കാൻ പൂർണ്ണ ദിവസങ്ങൾക്കകം എണ്ണായിരത്തോളം കിടക്കകൾ തയ്യാറാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ജില്ലയിൽ തുടരുകയാണ്

മാവൂർ തെങ്ങിലക്കടവ് ക്യാൻസർ സെന്റർ കോവിഡ് ആശുപത്രിയാക്കി മാറ്റാൻ നടപടികൾ ഉടൻ ആരംഭിക്കും രുമ കോഴിക്കോട് പാളയത്തും പുതിയ ബസ് സ്റ്റാന്റിലും നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മുഴുവൻ പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി

ദേഴ മഞ്ചേരി ബാർ കൌൺസിലിലെ അഭിഭാഷകന് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് മഞ്ചേരി മലപ്പുറം കോടതി സമുച്ചയങ്ങൾ താൽക്കാലികമായി അടച്ചു രോഗബാധിതനായ അഭിഭാഷകൻ കോടതിയിലെത്തിയിരുന്നു

അഭിഭാഷകനൊപ്പം ജോലി ചെയ്തവരോടും പ്രോസിക്യൂട്ടർ പൊലീസുകാർ എന്നിവരോടും ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി

ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും യുട്യൂബിലും പരിപാടി ലഭ്യമാകും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും വൈകിട്ട് എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ദേദ ലഘു സമ്പാദ്യ പദ്ധതികൾ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് തലത്തിൽ വരെ നടപ്പാക്കാൻ തപാൽ വകുപ്പ് തീരുമാനിച്ചു

ഇതിനകം ഒരു കോടി പത്തു ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയതായി മന്ത്രാലയം അറിയിച്ചു